ഹൈക്കോടതിയെ അറി യിച്ചു ഹവാല ഇടപാടിൽ പി ടി എ റഹീം എം എൽ എ യുടെ മകനും മരുമകനും സൌദിയിൽ അറസ്റ്റിലായി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കണ്ണൂരിൽ തുടങ്ങി

നവോത്ഥാനത്തോട് പുറം തിരിഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്നും സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക് സാധ്യമാക്കിയ നവോത്ഥാനത്തെ സംരക്ഷിക്കൽ ജനാധിപത്യ വിശ്വാസികളുടെ ബാധ്യതയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്തൃയുടെ അടിസ്ഥാനം ഭരണഘടനയാണ് അതിനെ വിശ്വാസംകൊണ്ട് മറികടക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലെന്നും ശബരിമല വിഷയത്തിലെ ചോദ്യത്തിന് മറുപടിയായി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി

രേഖാമൂലം അറിയിപ്പ് ലഭിക്കാതെ അദ്ദേഹത്തെ ്നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കി ല്ലെന്നാണ് പറഞ്ഞതെന്നും സ്പീക്കർ വിശദീകരിച്ചു യഥാർത്ഥ ഭക്തർക്ക് ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടു ത്തിയിട്ടില്ലെന്ന് ഗവ

ഭക്തർ കിടക്കാ തിരിക്കാൻ നടപ്പന്തലിൽ വെള്ളമൊഴിച്ചെന്ന ആരോപണം തെറ്റാ ണെന്നും നടപ്പന്തൽ കഴുകുന്ന പതിവ് കാലാകാലങ്ങളായി നില വിലുള്ളതാണെന്നും ഗവ വ്യക്തമാക്കി ശബരിമലയിലെ പൊലീസ് നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കവെയാണ് ഗവ നിലപാട് വ്യക്തമാക്കിയത് പൊലീസ് ഏർപ്പെടുത്തിയ ക്രമീകര ണങ്ങൾ എന്തൊക്കെയെന്നും അതിന് നിർദേശം നൽകിയത് ആരെന്നും അറിയിക്കാൻ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു

സന്നിധാനത്ത് നടക്കുന്ന ശരണം വിളിക്ക് പ്രതിഷേധത്തിന്റെ സ്വരമില്ലെന്നും അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു ഭക്തരെ കള്ളക്കേസിൽ കുടുക്കുന്നവർ ചരി ത്രത്തിൽ കറുത്ത ലിപികളാൽ രേഖപ്പെടുത്തപ്പെടുമെന്നും ശബ രിമല വിഷയത്തിൽ ആരുമായും സംവാദത്തിന് തയ്യാറാണെന്നും ശ്രീധരൻപിള്ള വൃക്തമാക്കി ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കാത്തത് ഭക്തരോ ടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല പറഞ്ഞു തെറ്റു തിരുത്താതിരിക്കുന്നത് ഗവൺമെന്റിന്റെ ധാർഷ്ട്യം കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

റാന്നി ഗ്രാമ ന്യായാലയത്തിൽ ഹാജരാക്കിയ സുരേന്ദ്രനെ കസ്റ്റ്ഡിയിൽ വേണമെന്ന് പൊലീസ് ആവശ്യം കോട തി നിരാകരിച്ചു ചോദ്യം ചെയ്യുന്നതിനായി അരമണിക്കൂർ കസ്റ്റ ഡിയിൽ വിട്ടുതരണമെന്നാണ് പൊലീസിന്റെ ആവശ്യപ്പെട്ടത് ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി ചിത്തിരയാട്ട സമയത്ത് സന്നിധാനത്തുണ്ടായ സംഘർഷ ത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുരേന്ദ്രനെ ഹാജ രാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വേട്ടയാടുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമോ എന്ന് മുഖ്യ മന്ത്രി ഭയപ്പെടുന്നുവെന്നും അതുകൊണ്ടാണ് തന്നെ കള്ളക്കേ സിൽ കുടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തനിക്കെതിരായ കേസുകൾ നിയമപരമായി നേരിടുമെന്നും കള്ളക്കേസ് രജിസ്റ്റർ ചെയ്താൽ താൻ വീഴില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കൊട്ടാര ക്കര ജയിലിൽ നിന്നും റാന്നി കോടതിയിലേക്ക് കൊണ്ടു പോകു ന്നതിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വിഷയത്തിൽ പണ്ഡിതൻമാരായ ജഡ്ജിമാർക്കും ബി ജെപി ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്കും തെറ്റുപറ്റിയതായി വി മുരളീധരൻ എം പി പറഞ്ഞു ശ്രബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്തത് തെറ്റായിപ്പോയതായി വൃശ്ചികോത്സവ ത്തോടനുബന്ധിച്ച് ഓച്ചിറയിൽ സംഘടിപ്പിച്ച മതസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു വിധിയിൽ അപാകമു ണ്ടെന്ന് തോന്നിയതു കൊണ്ടാകണം പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാൻ കോടതി തയ്യാറായത് പ്രതിഷ്ഠയുടെ താന്ത്രിക വിധി മാറ്റാൻ കോടതിക്ക് അധികാരമില്ലെന്നും ആചാരങ്ങളെ നിയ മപരമായി സമീപിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ നാമജപം നടത്തിയ നൂറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു നിരോധനാജ്ഞ ലംഘിച്ചുവെന്ന് കാണിച്ചാണ് സന്നിധാനം പോലീസിന്റെ നടപടി ഇന്നലെ രാത്രി പത്തരയ്ക്ക് സന്നിധാനത്തെ വടക്കേനട ഭാഗത്ത് നാമജപം നടത്തിയവർക്ക് എതിരെയാണ് കേസെടു ത്തത്

ശബരിമലയിൽ ഏർപെടുത്തിയ നിരോധനാജ്ഞ ഇന്നലെ നാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു

കേരളത്തിലെ ആത്മീയ കാലഘട്ടം സിപിഐഎമ്മും ബി ജെ പിയും കലുഷിതമാക്കിയതായി ഓൾ ഇന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് കാസർക്കോട് ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു

ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രാം മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഐഎം സംസ്ഥാനസമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി ശബരിമല വിഷയത്തിൽ ആർഎസ്എസ് ബിജെപി കോൺഗ്രസ് സമരങ്ങൾക്കെതിരെ രണ്ടാംഘട്ട പ്രചാരണത്തിന് യോഗം രൂപം നൽകിയേക്കും പ്രി കെ ശശി എം എൽഎക്കെ തിരായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പരിഗണിച്ചേക്കും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് കുന്ദമംഗലം എം എൽ എ പി ടി എ റഹീമിന്റെ മകൻ ടി പി ഷബീർ സൌദിയിൽ അറ സ്റ്റിലായി എം എൽ എയുടെ മകളുടെ ഭർത്താവ് ഷബീർ വായോ ളിയും അറസ്റ്റിലായതായാണ് റിപ്പോർട്ട് അറസ്റ്റു വിവരം സൌദി വിദേശകാരൃമന്ത്രാലയം ഡി ആർ ഐയ്ക്ക് കൈമാറിയിട്ടുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുമെന്നും സർവ്വകലാശാലകളിൽ ഏകീകൃത പരീക്ഷാ കലണ്ടർ നടപ്പാക്കുമെന്നും മന്ത്രി ഡോ കെ ടി ജലീൽ പറഞ്ഞു

ജമ്മു കശ്മീരിലെ അനന്ത് നാഗ് ജില്ലയിൽ ആറ് തീവ്രവാദി കളെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു ബിജ്ബെഹ്റയിലെ വനപ്രദേശത്താണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഏറ്റു മുട്ടൽ തുടരുകയാണ് വനപ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരി ക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സൈനികർ പ്രിശോധനക്ക് എത്തിയപ്പോൾ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു ഇവരിൽ നിന്ന് നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രദേ ശത്ത് കൂടുതൽ പരിശോധനകൾ തുടരുകയാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കണ്ണൂരിൽ ആരംഭിച്ചു രാവിലെ മുതൽ ഗവ വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂളിൽ മത്സാരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു

ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയ മേള ഐ ടി മേള തുടങ്ങിയ ഇനങ്ങളിലായി അയ്യായിരത്തോളം പ്രതിഭകളാണ് മത്സരിക്കുന്നത് നാളെയും മറ്റന്നാളുമായി കണ്ണൂ രിലെ അഞ്ച് വേദികളിലായാണ് മത്സരം നടക്കുന്നത്

ആദ്യ കളിയിൽ തോറ്റ ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ജയം അനിവാര്യമാണ്

ഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ഏഴ് കളികളിൽ നിന്ന് ഏഴ് പോയിന്റ് നേടിയ ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്താണ്

അൽവാസ് കോളജിലെ സ്വരാജ് മൈതാനത്തിലാണ് മീറ്റ്

വർഗ്ഗീയ മുക്ത ഭാരതം അക്രമരഹിത കേരളം എന്ന മുദ്രാ വാക്യമുയർത്തി മുസ്ലീം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മറ്റി നാളെ കാസർക്കോട് മഞ്ചേശ്വരത്ത് നിന്നും യുവജന യാത്ര ആരംഭി ക്കും സംസ്ഥാന പ്രസിഡണ്ട് മുനവ്വറലി ശിഹാബ് തങ്ങൾ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വൈസ് ക്യാപ്റ്റ നുമായ ജാഥ നാളെ വൈകീട്ട് മുസ്തീം ലീഗ് സംസ്ഥാന പ്രസി ഡണ്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി ക്കുട്ടി എം പി ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പി കെ അബ്ദുൾ വഹാബ് എന്നിവരും യു ഡി എഫ് ഘടകകക്ഷി നേതാ ക്കളും ജാഥയിൽ പങ്കെടുക്കും

തിരൂർ കൂട്ടായിയിൽ മെഡിക്കൽ കൃാമ്പ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം മന്ത്രിയുടെ വാഹനം വഴിയിൽ തടഞ്ഞായിരുന്നു പ്രതിഷേധം കുരുമുളകിനായി കണ്ണൂരിൽ കുരുമുളക് ഉത്പാദക കമ്പനി രൂപീകരിക്കുന്നു കണ്ണൂർ കൃഷി വിജ്ഞാന ക്യേന്ദ്രം നബാർഡ് എന്നിവയുടെ സഹായത്തോടെ ചെറുതാഴം കുരുമുളക് ഉത്പാ ദക കമ്പനി എന്ന പേരിലാണ് കമ്പനി രൂപീകരിക്കുന്നത് നാളെ ഉച്ചക്ക് മന്ത്രി വി എസ് സുനിൽകുമാർ കുരുമുളക് ഉത്പാദക കമ്പനി ഉദ്ഘാടനം ചെയ്യും സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഡിജിപിക്ക് പരാതി നൽകി ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത യുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പിതാവ് സി കെ ഉണ്ണിയാണ് കത്ത് നൽകിയത് മൊഴിയിലെ വൈരുധ്യം അടക്കം കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു

വാഹനത്തിൽ ഒപ്പമുണ്ടാ യിരുന്ന ബാലഭാസ്കറിന്റെ മകൾ രണ്ടു വയസുകാരി തേജസ്ഥിനി ബാല നേരത്തെ മരിച്ചിരുന്നു വടകരയിൽ കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും

പത്തിലേറെ ആനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടെ ന്നാണ് വിവരം വിവിധ ബ്ലോക്കുകളിൽ വനപാലകർ പരിശോ ധന നടത്തിയെങ്കിലും ഇതുവരെ ആനകളെ കണ്ടെത്താനായിട്ടില്ല കണ്ണൂർ ഇരിട്ടിയിൽ വീട് നിർമ്മാണത്തിനിടെ തൊഴിലാളി വീണു മരിച്ചു